നവോത്ഥാനം കൃത്രിമമായി സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ മോട്ടോർവാഹന നിയമഭേദഗതിയൂടെ ആവശ്യകത ബോധ്യ പ്പെടുത്താൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്ഗരി മുഖ്യമന്ത്രിമാരു മായി ചർച്ച നടത്തും പാലാ ഉപതെരഞ്ഞെടുപ്പിൽ യൂഡിഎഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനുവേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ്

ശ്രീനാരായണ്ഗുരു ജയന്തി ഭക്തനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കുന്നു കുട്ടികളുടെ സംരക്ഷണം സമൂഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സുരക്ഷിതമായ ബാല്യം കുട്ടികളുടെ അവകാശമാണ് മാലാഖമാരെ പോലെ കാണേണ്ട കുട്ടികളോട് ചിലർ പൈശാചികമായാണ് പെരുമാറുന്നത് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് ഗവൺമെന്റ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും പിണറായി പറഞ്ഞു

കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളും പീഡനവും ഇല്ലാതാക്കുന്നതിന് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതി നായി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ സന്ദേശ പ്രചരണ ബൈക്ക് റാലി കൂത്തു പറമ്പ് നിർമ്മലഗിരി കോളേജിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക ശേഷം കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻററി സകൂളിലും വൈകീട്ട് കോട്ടക്കൽ ചങ്കു വെട്ടി രാജാസ് ഗവ ഹയർ സെക്കൻററിയിലും റാലിക്ക് സ്വീകരണം നൽകും നാളെ രാവിലെ എറണാകുളം മഹാരാജാസ്ക് കോളേജിലും വൈകുന്നേരം ആലപ്പുഴ ബീച്ചിലും കൊല്ലം ബീച്ചിലും സ്വീകരണം നൽകുന്ന റാലിയുടെ ആദ്യഘട്ടം തിരുവനന്തപുരത്ത് സമാപിക്കും സംസ്ഥാനത്ത് മികച്ച വ്യവസായ സൌഹൃദ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണ്റായി വിജയൻ പറഞ്ഞു

നാട്ടിലെ വ്യവസായങ്ങൾ കൂടുതൽ അഭിവൃദ്ധിപ്പെടുന്നതിന് ഗ്വൺമെന്റ് പലനടപടികളും സ്വീകരിച്ചു വരികയാണെന്നും മുഖ്യമന്തി പറഞ്ഞു

പ്രദീപൻ എന്നിവർക്കാണ് അവാർഡ് നൽകിയത്

ഹിന്ദു ഐക്യം ഉണ്ടാ ക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് അല്ലെന്നും ശബരിമല പ്രക്ഷോ ഭത്തെ തകർക്കാൻ ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് സമിതിയാണ് നവോ ത്ഥാന സംരക്ഷണസമിതിയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു മതിലുകൾ പൊളിച്ചാണ് ശ്രീനാരായണ ഗുരുദേവൻ നവോ ത്ഥാനം നടപ്പിലാക്കിയത് എന്നാൽ ഇവിടെ ചിലർ മതിലുകൾ കെട്ടു കയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

സമിതി വിട്ടുപോകുമെന്ന് പ്രഖ്യാപിച്ച ഹിന്ദു പാർലമെന്റ് അംഗം സി പി സുഗതൻ കടലാസ് പുലിയാണെന്നും വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ വിമർശിച്ചു പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ സാഹചര്യമാണ്ട് നിലവിലുള്ള തെന്നും അദ്ദേഹം പറഞ്ഞു മോട്ടോർവാഹന നിയമ ഭേദഗതിയുടെ ആവശ്യക്ത ബോധ്യപ്പെ ടുത്താൻ കേന്ദ്രമന്ത്രി നിതിൻഗഡ്ഗരി മൂഖ്യമന്ത്രിമാരുമായി നേരിട്ട് ചർച്ച നടത്തും പിഴ നിരക്കുകൾ കുത്തനെ ഉയർത്തിയതിനെതിരെ സംസ്ഥാനങ്ങളുടെ എതിർപ്പുകൾ നീക്കാൻ തീരുമാനങ്ങൾ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ക്കെക്കൊള്ളു മെന്ന് ഗഡ്ഗരി ന്യൂഡൽഹിയിൽ അറിയിച്ചു സ്ഠസ്ഥാനങ്ങൾക്ക് പിഴനിരക്ക് കുറ യ്ക്കാന് സാധിക്കുമോ എന്ന് കാര്യത്തിൽ ഉപരിതല ഗതാഗത മന്ത്രാ ലയം നിയമോപദേശും തേടിയിട്ടുണ്ട് മോട്ടോർവാഹ്ന നിയമലംഘനങ്ങൾക്ക് പിഴയും ശിക്ഷയും വർധിപ്പിച്ച നടപട്ടി പിൻവലിക്കരുതെന്നാണ് വ്യക്തിപരമായ അഭി പ്രായമെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ അറിയിച്ചു താൽക്കാ ലിക കയ്യടിനേടാൻ നിയമം നടപ്പാക്കാതിരിക്കുന്നത് സമൂഹത്തിന് ദോഷകരമാണെന്ന് മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു പാല ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ വിജ യത്തിനുവേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് അറിയിച്ചു നാളത്തെ യുഡിഎഫ് നേതൃ യോഗത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹംപറഞ്ഞു യുഡിഎഫിന്റെ നിർദേശപ്രകാരമാണ് വിയോജിപ്പുകൾ മാറ്റിവെച്ച് ഒന്നിച്ച് പ്രവർത്തി ക്കാൻ തീരുമാനിച്ചതെന്ന് ഇരുപക്ഷവും അറിയിച്ചിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ്ഗ അതിക്രമ നിരോധന നിയമത്തിൽ സുപ്രീംകോടതി വരുത്തിയ ഇളവുകൾ അവലോകനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രം നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി മൂന്നംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടു

വാദം പൂർത്തിയായ കേസിൽ രണ്ടംഗ ബെഞ്ച് മെയ് ഒന്നിന് വിധി മാറ്റിവെക്കുകയായിരുന്നു സുപ്രീംകോടതി വരുത്തിയ മാറ്റ ങ്ങൾ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും പുനഃപരിശോധിക്കണ മെന്നും ആവശ്യപ്പെട്ടായിരുന്നു കേന്ദ്രത്തിന്റെ ഹർജി

കാണാതാ്യവർക്കായി തെര ച്ചിൽ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മധ്യപ്രദേശ് ഗവൺമെന്റ് നാല് ലക്ഷം രൂപ വീതം ധനസഹായും പ്രഖ്യാപിച്ചു ഐഎൻഎക്സ് മീഡിയുക്സിൽ ജയിലിൽ കഴിയുന്ന കോൺഗ്രസ് നേതാവും മുൻ്ധന്മന്ത്രിയുമായ പി ചിദംബരത്തെ കസ്റ്റഡിയിൽ വേണ്ടമെന്ന് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയ റക്ടറേറ്റ് നൽകിയ ഹ്യർജിയിൽ സിബിഐ കോടതി ഇന്ന് ഉത്ത രവ് ഇറക്കും എൻഫോഴ്സ്മെന്റ് തന്നെ അറസ്റ്റ് ചെയ്യരുതെന്നാവ ശ്യപ്പെട്ട് പി ച്ചിദംബരം നൽകിയ ഹർജി നേരത്തെ സുപ്രീംകോ ടതി തള്ളിയിരുന്നു

യൂറോപ്യൻ രാജ്യങ്ങളടക്കം നൂറിലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ കയറ്റി അയക്കുമെന്ന് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ പറഞ്ഞു മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഉൽപാദിപ്പിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റു കൾ ഉയർന്ന ഗുണമേന്മയുള്ളതാണെന്ന് മന്ത്രി വ്യക്തമാക്കി അമേരിക്ക ഇംഗ്ലണ്ട് ജർമനി എന്നീ രാജ്യങ്ങളോടൊപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഉൽപാ ദിപ്പിക്കുകയും കയറ്റി അയക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ

സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചും അവർ ചർച്ച ചെയ്യും

എല്ലാ പാർട്ടി എംപ്പിമാർും എംഎൽഎമാരും അവ രുടെ മണ്ഡലങ്ങളിൽ സേവാവാരത്തിന്റെ ഭാഗമായി വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുമെന്ന് പ്ടാർട്ടി ജനറൽ സെക്രട്ടറി അരുൺ സിങ്ങ് ഡൽഹിയിൽ അറിയിച്ചു

ഡൽഹി എയിംസിലെ പാവപ്പെട്ട രോഗികൾക്ക് ബിജെപി അധ്യക്ഷൻ അമീത്ഷായും വർക്കിങ്ങ് പ്രസിഡന്റ് ജെ

നദ്ദയും പഴങ്ങൾ വിത്രണം ചെയ്യും

ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോ ധന ചെയ്യുന്ന അദ്ദേഹം നിരവധി ഉഭയകക്ഷി ബഹുകക്ഷി കരാറു കളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും സംബന്ധിക്കും ഹുസ്റ്റണിൽ ഇന്ത്യൻ വംശജരുടെ സംഗമത്തിലും അദ്ദേഹം പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ ഡൽഹിയിൽ അറിയിച്ചു

ഗുരുഭക്തരും ശ്രീനാ രായണ പ്രസ്ഥാനങ്ങളും ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ലോക മെമ്പാടും ജയന്തി ആഘോഷിക്കും

പ്രതിപക്ഷ നേതാവ് ്രമേശ് ചെന്നിത്തല ശ്രീനാരായണ ദാർശനിക സമ്മേളനൃ ഉദ്ഘാടനം ചെയ്തു വൈകീട്ട് ഘോഷയാത്രയ്ക്ക് ശേഷം ജയ്ന്തി സമ്മേളനം മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷനാകും മഹാസമാധി സ്ഥലമായ വർക്കല് ശിവഗിരി മഠത്തിൽ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ പതാക ഉയർത്തി കേന്ദ്ര സഹമന്ത്രി വി മുരളീധർൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

ചേളന്നൂർ ശ്രീനാരായണ മന്ദിര ത്തിൽ ഗുരുജയന്തി സാംസ്കാരിക സമ്മേളനം മന്ത്രി എ

ശശീ ന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിഭാഗീയത നടമാടുന്ന വർത്തമാന കാലഘട്ടത്തിൽ സമൂഹത്തിന് വെളിച്ചം പകരാൻ ഗുരുദർശനത്തിന് സാധിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദൻ പറഞ്ഞു

ഫ്ളാറ്റ് ഒഴിയണമെന്ന് കാണിച്ച് തങ്ങൾക്ക് ലഭിച്ച കത്ത് നിയമാനുസൃതമല്ലെന്നും നഗരസഭ ഓഫീ സിന് മുന്നിൽ നാളെ മുതൽ ധർണ നടത്തുമെന്നും അവർ അറിയിച്ചു അതിനിടെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കണമെന്ന ഉത്തരവി നെതിരെ ഫ്ളാറ്റുടമകൾ സുപ്രീം കോടതിയിൽ തിരുത്തൽ ഹർജി ഫയൽ ചെയ്തു

ഫ്ളാറ്റിലെ താമസക്കാർ രാഷ്ട്ര പതിക്ക് ഇ മെയിലായി സങ്കട ഹർജി അയക്കാനും തുടങ്ങി താമസക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ്സിപിഐഎം നാളെ ബഹുജന മാർച്ച് നടത്തും സംസ്ഥാന സെക്രട്ടറി കോടി യേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്ത്രമന്ത്രി അമിത്ഷായാണ് സ്റ്റേഡിയ ത്തിന്റെ പേര് മാറ്റിയതായി പ്രഖ്യാപിച്ചത് അരുൺജെയ്റ്റിലിയോടുള്ള ആദരസൂചകമായാണ് സ്റ്റേഡിയ ത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയത് കൊൽക്കത്തയിൽ ഈഡൻ ഗാർഡ്യൻസ് കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും പഴക്കമേ റിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഇത് സ്റ്റേഡിയത്തിന്റെ ഒരു പവലി യന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നാകൻ വിരാട് കോഹ്ലിയുടെ പേരും നൽകിയിട്ടുണ്ട് സംസ്ഥാന സബ്ബ് ജൂനിയർ ജൂനിയർ സീനിയർ മാസ്റ്റേഴ്സ് പുരൂഷ വനിത വിഭാഗം പവർ ലിഫ്റ്റിംഗ് ചാംപ്യൻഷിപ്പിന് കോഴിക്കോട് തുടക്കമായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡണ്ട് ഒ

ഞായറാഴ്ച വരെ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്

എസ് സ്റ്റേഡിയത്തിൽ നടക്കും

പായിപ്പാട് ജലോത്സവം ഉച്ചകഴിഞ്ഞ്

ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠയുടെ സ്മര ണാർത്ഥമാണ് വള്ളംകളി ഓണാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ടൂറിസ്റ്റ് പ്രമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മലബാർ ജല്പോത്സവം നാളെ അത്തോളി കുനിയിൽ കടവിൽ ആരംഭിക്കും വൈകിട്ട് മൂന്നിന് സാംസ്കാരിക ഘോഷയാത്ര നടക്കും സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കുറഞ്ഞു